സമ്മേളനത്തിൽ ഹൂസ്റ്റണിലെ ടെല്യൂറിയാൻ കമ്പനിയും ഇന്ത്യയിലെ പെട്രോനെറ്റ് എൽ എൽ ജിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു

ഇന്ത്യ യു എസ് ബന്ധം ശക്തമാകുന്നതിന്റെ തെളിവാണ് ഇതെന്ന് സമ്മേളനത്തിൽ സംബന്ധിച്ച വ്യവസായ നയ പ്രോൽസാഹന വകുപ്പ് സെക്രട്ടറി ഗുരുപ്രസാദ് മഹാപത്ര ആകാശവാണിയോട് പറഞ്ഞു

ഹൂസ്റ്റണിൽ എത്തിയ പ്രധാനമന്ത്രിയെ അമേരിക്കൻ അന്താരാഷ്ട്ര വൃാപാര കാരൃ ഡയറക്ടർ ക്രിസ്റ്റഫർ ഓസ്ലോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചു ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി കെന്നത്ത് ജസ്റ്റർ ഇന്ത്യൻ സ്ഥാനപതി ഹർഷവർദ്ധൻ ശൃംഗള തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരു വിഭാഗങ്ങളുമായും മിക്കച്ചു ആശയവിനിമയം നടന്നതായും ഇന്ത്യയുടെ വികസ്തൃത്തിൻമേലുള്ള അവരുടെ ആഗ്രഹം പങ്കുവച്ചതായും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ഡാവുദീ ബോഹ്റ വിഭാഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചതായും വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവരുമായി സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എ

അബൂദാബി നിക്ഷേപക അതോറിട്ടി ഡയറക്ടർ ഷെയ്ക് ഹമദ് ന ബിൽ സയ്ദ് അൽ നഹ്യാൻ സഹ അദ്ധ്യക്ഷനായിരിക്കും പെട്രോളിയം പ്രകൃതിവാതകം ഭക്ഷൃ സംസ്കരണം വ്യോമയാനം റെയിൽവേ പുനരുപയോഗ ഊർജ്ജം അടിസ്ഥാന സൌകരൃ വികസനം കപ്പൽ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇരുവരും ചർച്ച നടത്തും

എ

ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഇന്ത്യൻ പവലിയൻ പ്രകൃതി സൌഹാർദ്ദ രീതിയിലാണ് നിർമ്മിക്കുന്നത്

ഇന്നലെ വൈകുന്നേരം പോപ്പൽവാദി പ്രദേശത്തെ കടയിൽ പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ തെരച്ചിലിലാണ് പണം കണ്ടെടുത്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പിടിച്ചെടുത്ത പണം തുടരന്വേഷണങ്ങൾക്കായി ആദായനികുതി വകുപ്പിന് കൈമാറി

വ്യാജ ലൈസൻസ് തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി ആധാർ നിർബന്ധമാക്കിയാൽ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസുകൾ നിർമ്മിക്കാനാകില്ലെന്ന് ഇന്നലെ പാട്നയിൽ നടന്ന ചടങ്ങിൽ ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു അഴിമതി ഇല്ലാതാക്കുന്നതിൽ ആധാറിന് മുഖ്യ പങ്കാണുള്ളതെന്നും ഒന്നരലക്ഷം കോടി രൂപയാണ് ആധാർ വന്നതിലൂടെ ഗവൺമെന്റ് ഖജനാവിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രതിരോധ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള സുരക്ഷാവിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുമായും നാവികസേനാ മേധാവി ചർച്ചകൾ നടത്തും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലനിൽക്കുന്ന പരമ്പരാഗത സൈനിക സഹകരണത്തിന്റെ ഭാഗമായാണ് നാവികസേനാ മേധാവിയുടെ സന്ദർശനം

ഇയാൾക്കെതിരെ സി ബി ഐ ഒന്നിലധികം കേസുകൾ ചാർജ്ജ് ചെയ്തിട്ടുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് അറിയിച്ചു

വ്യാജ കമ്പനികളുടെ പേരിൽ വായ്പകൾ സ്വന്തമാക്കി ഇയാൾ ബാങ്കുകളെ കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് ലൈബീരിയ വഴി ദുബായിലേക്ക് കടന്ന സുരേന്ദ്രകുമാറിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്ത്യയിലെത്തിക്കുകയായിരുന്നു

നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് മൂന്നു മുന്നണി സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നുണ്ട്

കല്യാൺ സിംഗിന്റെ രാജസ്ഥാൻ ഗവർണർ പദവി അവസാനിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നീക്കം

എന്നാൽ ഗവർണർക്ക് ലഭിക്കുന്ന പ്രത്യേക അധികാരത്താൽ നടപടികൾ സ്വീകരിക്കാനായിരുന്നില്ല ഗവർണർ പദവിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് നടപടി എടുക്കാൻ സുപ്രീംകോടതി അനുവദിക്കുകയായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശ പ്രകാരം കേസിൽ തുടർച്ചയായുള്ള വിചാരണ നടന്നുവരികയാണ്

സൌരോർജം പ്രോത്സാഹിപ്പിക്കുക ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുക എന്നിവയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്

പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ അദ്ദേഹം പഞ്ചായത്തുകളോടും വാർഡ് അംഗങ്ങളോടും ആഹ്വാനം ചെയ്തു

ഇത് രണ്ടാം വട്ടമാണ് പ്രക്ഷോപകർ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്

ഗവൺമെന്റ് വിരുദ്ധനായ മുഹമ്മദ് അലി എന്ന വ്യാപാരിയാണ് പ്രക്ഷോപങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്ത് ഈജിപ്ത്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താൻ അൽ സിദ്ധിയെ പ്രിസ്ട്രിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോപ്പിം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കെയ്റോയിലെ തഹ്രിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്

ഇരുസംസ്ഥാനങ്ങളിലുംതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽവന്നു

തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നക്സൽ ഭീഷണി നേരിടുന്ന മേഖലകളിൽ പ്രത്യേക സുരക്ഷാസംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

ആദ്യകളി മഴയെത്തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു

കഴിഞ്ഞ വെള്ളിയാഴ്ച ചീഫ് സെക്രട്ടറി ടോം ജോസ് സുപ്രീംകോടതിയിൽ ഹാജരായി സത്യവാങ്മൂലം നൽകിയിരുന്നു